എം നേതാവും സ്ഥാനാർത്ഥിയുമായിരുന്ന സി

മുസ്തീംലീഗിലെ പാറയ്ക്കൽ അബ്ദുള്ളയാണ് അടിയന്തിര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ആക്രമണവുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു കേസിൽ ഉൾപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സി ഒ

വളരെ ആസൂത്രിതമായി പരിശ്ചീലനം ലഭിച്ചവരാണ് സംഭവത്തിന് പിന്നിലുള്ളതെന്ന് ചർച്ചയിൽ ഇടപെട്ട് പ്രി സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കുറ്റകൃത്യം നടത്തിയത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ അണികളാണെന്നും സംഭവവുമായി ബന്ധമുള്ള പഴിപ്പി എം